നാലാംഘട്ട ലോക്ഡൌൺ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും

ത കോവിഡ് ബാധിത പശ്ചാത്തലത്തിൽ പൊലീസിന്റെ പ്രവർത്തന ക്രമങ്ങളിൽ മാറ്റം വരുത്തി

വാർത്തകൾ വിശദമായി ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ പ്രഖ്യാപിച്ച സാമ്പത്തിക നടപടികൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒട്ടേറെ ബിസിനസ് അവസരങ്ങൾക്കും ഇത് വഴിവെക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു കൽക്കരി ധാതുക്കൾ പ്രതിരോധം വ്യോമയാനം ബഹിരാകാശം ആണവോർജ്ജം തുടങ്ങിയ സുപ്രധാന മേഖലകൾ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു രേദ ആത്മനിർഭർ ഭാരത് പദ്ധതിയനുസരിച്ച് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഭക്ഷ്യധാന്യ വിതരണം ആരംഭിച്ചതായി കേന്ദ്രഗവൺമെന്റ് അറിയിച്ചു റേഷൻകാർഡ് ഇല്ലാത്ത എട്ട് കോടിയോളം കുടിയേറ്റ കുടുംബങ്ങൾക്കും ആളൊന്നിന് അടുത്ത രണ്ട് മാസത്തേക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം പദ്ധതിയിൽ നൽകും

നാലാംഘട്ട ലോക്ഡൌൺ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല

ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുവദിക്കും എന്നാൽ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുവദിക്കില്ല ചരക്കു വാഹനങ്ങൾ ആരോഗ്യ ആവശ്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ അടിയന്തര ഡ്യൂട്ടിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് യാത്രാനുമതി നൽകും

മാധ്യമങ്ങൾ ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ ലാബുകൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കും കല്യാണങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കുമല്ലാതെ ആളുകൾ ഒത്തുകൂടാൻ അനുവദിക്കില്ല

കോവിഡ് രോഗലക്ഷണങ്ങൾ കണ്ട ഒരു യാത്രക്കാരനെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി

ഇന്ന് രണ്ട് വിമാനങ്ങൾ കൊച്ചിയിലെത്തും

എസ് ജലാശ്വ രാവിലെ പത്തരയോടെ കൊച്ചിയിലെത്തും

യാത്രക്കാരിൽ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയ നാലു പേരെയും നേരിയ ആരോഗ്യ പ്രശ്നം അനുഭവപ്പെട്ട ഒരാളെയും മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം ആലപ്പുഴ കാസർകോട് കണ്ണൂർ കൊല്ലം കോഴിക്കോട് പാലക്കാട് ജില്ലക്കാരും തമിഴ്നാട് മാഹി സ്വദേശികളുമാണ് വയനാട് വിമാനത്തിലുണ്ടായിരുന്നത്

രുര പ്രവാസികളുമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് രണ്ടാമത്തെ വിമാനമിറങ്ങും വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

കോഴിക്കോട്ട് മൂന്നും പാലക്കാട് മലപ്പുറം ജില്ലകളിൽ രണ്ടുപേർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഏഴു പേർ വിദേശരാജ്യങ്ങളിൽ നിന്നും രണ്ട് പേർ വീതം തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് വയനാട് കണ്ണൂർ ജില്ലകളിൽ രണ്ടു പേരുടെ വീതം പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായി രുര തൃശൂർ ജില്ലയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരെല്ലാം വിദേശത്തുനിന്ന് എത്തിയവരാണ്

കോയമ്പേട് മാർക്കറ്റിൽ നിന്ന് രോഗബാധയുണ്ടായ ട്രക്ക് ഡ്രൈവറുടെ അമ്മയും കൂടെ ജോലി ചെയ്ത സഹായിയുടെ മകനുമാണ് രോഗ മുക്തരായത്

രേഖകളുടെ പരിശോധന അറസ്റ്റ് കുറ്റകൃത്യം നടന്ന സ്ഥലം പരാതിക്കാരോട് സംസാരിക്കൽ വിവിധ ഉപകരണങ്ങളുടെ പ്രയോഗം എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിലാണ് മാറ്റം

നിർദ്ദേശങ്ങൾ നാളെ നിലവിൽ വരും ഈ മാറ്റങ്ങൾ ഒരു സാഹചര്യത്തിലും പൊലീസിന്റെ പ്രവർത്തനമികവിനെ ബാധിക്കില്ലെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു

ചെന്നൈയിൽ മാത്രം കോവിഡ് രോഗികളുടെ എണ്ണം ആറായിരം കടന്നു

കടൽ ക്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുള്ളതിനാൽ കേരളം കന്യാകുമാരി ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദേശമുണ്ട് ദര ഇടിമിന്നലോട് കൂടിയ വേനൽമഴ സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മഴക്കാലത്തിനു മുന്നോടിയായി ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്നു രാവിലെ ഷട്ടറുകൾ ഉയർത്തിയത് തൊടുപുഴ മൂവാറ്റുപുഴ നദികളുടെയും കൈവരികളുടെയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

വാളയാറിൽ രോഗിയുമായി പ്രാഥമിക സമ്പർക്കം പുലർത്തിയ ജനപ്രതിനിധി പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി അധ്യക്ഷനായിരുന്നു എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത ആർക്കും ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ബോർഡ് അറിയിക്കുകയായിരുന്നു